കർശനമായി പാലിക്കണമെന്ന് ബിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

വിപുലമായ വാക്സിനേഷൻ പദ്ധതിയുമായി ആരോഗൃവകുപ്പ്

റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വിജയം ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

ഭരണ കക്ഷിയായ തൃണമൂൽ കോൺഗ്രസും ബി ജെ

കോൺഗ്രസും ഇടത് പാർട്ടികളും ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടും ചേർന്ന് സംയുക്ത മോർച്ചയുടെ ബാനറിലാണ് മത്സരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് പുറമെ സുതാരൃതയും വിശ്വാസൃതയും ഉറപ്പാക്കാനായി വി വി

കോവിഡ് കണക്കിലെടുത്ത് ഒരു ബൂത്തിൽ പ്രമാവധി ആയിരം പേർക്കാണ് വോട്ട് ചെയ്യാൻ സംവിധാന്ന് അർപ്പെടുത്തിയിട്ടുള്ളത്

പ്രമുഖ നേതാക്കൾ അടക്കമുള്ളവർ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇതോടൊപ്പം ആന്ധ്രാ പ്രദേശിലെ തിരുപ്പതി കർണാടകത്തിലെ ബെൽഗാം ലോക്സഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണവും ഊർജ്ജിതമാണ്

നിർദ്ദേശം ലംഘിക്കുന്ന പാർട്ടികളുടെ യോഗങ്ങളും റാലികളും നിരോധിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സാമൂഹിക അകലം പാലിക്കുക മാസ്ക് ധരിക്കുക തുടങ്ങിയവ നിർബന്ധമായും പാലിക്കുന്നുണ്ടോയെന്ന് കമ്മീഷൻ കർശനമായി നിരീക്ഷിക്കും പല അവസരങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് അയച്ച കത്തിൽ കമ്മീഷൻ വൃക്തമാക്കി ഈ വിഷയത്തിൽ പാർട്ടി പ്രതിനിധികൾ ജനങ്ങൾക്ക് മാതൃകയാകണമെന്നും തെരഞ്ഞെടുപ്പ് കണ്ണീഷൻ നിർദ്ദേശിച്ചു

ഇന്നലെയാണ് എഡിൻബർഗ് ഡ്യൂക്കും കൃലിസബത്ത് രാജ്ഞിയുടെ ഭർത്താവുമായ ഫിലിപ്പ് അന്തരിച്ചത്

ബ്രിട്ടീഷ് നാവികസേന അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണെണ് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

നെതർലൻഡ് പ്രധാനമന്ത്രി മാർക്ക് റട്ടിലുമായി നടത്തിയ വെർച്ചൽ കൂടിക്കാഴ്ച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ മൂലൃത്തിലും നിയമവ്യവസ്ഥയിലും ഊന്നിയുള്ള സഹകരണമാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി ആവിഷ്ക്കരിക്കുന്ന ഫാസ്റ്റ് ട്രാക് സംവിധാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണത്തിന് കരുത്തേകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പദ്ധതിയ്ക്കാവശ്യമായ വാക്സിൻ നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ

അതുകൊണ്ടു തന്നെ ഇവരെ സംരക്ഷിക്കാൻ വാക്സിനേഷൻ ദ്രുതഗതിയിലാക്കണമെന്ന് മന്ത്രി പറഞ്ഞു

കോവിഡ് കോവിഡേത്ര പ്രവർത്തനങ്ങൾ ഒരുപോലെ നടത്താനായതു കൊണ്ട് സ്ംസ്ഥാനത്ത് മരണനിരക്ക് നന്നായി കുറയ്ക്കാനായതായും ഇനിയും ഈ പ്രവർത്തനം തുടരുമെന്നും മന്ത്രി അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പെട്രോൾ പമ്പുകൾ മരുന്ന് കടകൾ എൽ

ജി

സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചരൃത്തിലാണ് നടപടി

ഇന്നലെ വൈകുന്നേരം ആറ് മുതൽ പ്രഖ്യാപിച്ച ലോക്ഡൌൺ തിങ്കളാഴ്ച പുലർച്ചെ ആറ് വരെ തുടരും

രണ്ടാം നിലയിലുള്ള ഐ

അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ചു

കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പ്രതിരോധ മരുന്നിന് ക്ഷാമമില്ല എന്നാൽ ഈ സംസ്ഥാന്നങ്ങൾ ആരോഗ്യ സുരക്ഷയിൽ ജാഗ്രത കാട്ടണമെന്ന് മന്ത്രി പറഞ്ഞു

ജെ പി അധ്യക്ഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി